ആരോഗ്യ ഭാരതത്തിന്റെ സൃഷ്ടിക്ക് ശാരീരിക ക്ഷമത കൈവരി ക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് പ്രധാനമന്ത്രി

ശബരിമല വിഷയത്തിൽ നിലപാട് മാറ്റമില്ല കോട തിവിധി മറിച്ചായാൽ അതും നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി

ശശിതരൂർ എം പിക്കെ തിരെ നടപടിയില്ലെന്ന് കെ

ങ്ങ ൽ രാജ്യത്തെ ആരോഗ്യകരമായ ഭാവിയിലേക്ക് നയിക്കുന്ന ഫിറ്റ് ഇന്ത്യാ പ്രസ്ഥാനം കാലഘട്ടത്തിന്റെ ആവശ്യമാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു ഇന്ത്യൻ സംസ്കാരത്തിന്റെ സമഗ്ര ഭാഗമായിരുന്നു ശാരീരിക ശേഷി വർധിപ്പിക്കുന്ന ആയോധന മുറ കളെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു ദേശീയ കായിക ദിനത്തിൽ ആരംഭിക്കുന്ന ഫിറ്റ് ഇന്ത്യ ക്യാമ്പയിന് തുടക്കം കുറി ക്കുകയായിരുന്നു പ്രധാനമന്ത്രി കായികമന്ത്രി കിരൺ റിജ്ജുവും ചടങ്ങിൽ പങ്കെടുത്തു ആരോഗൃഭാരതത്തിന്റെ സൃഷ്ടിക്ക് വ്യായാമത്തിനുംകായിക ഇന ങ്ങൾക്കും ദിനചര്യയിൽ പ്രധാന്യം നൽകണമെന്ന സന്ദേശത്തോ ടെയാണ് ക്യാമ്പയിൻ നടപ്പാക്കുന്നത് ചടങ്ങിൽ പങ്കെടുത്തവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കായികക്ഷമതാ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ആരോഗ്യ ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഒരു ചുവട് മുന്നേറ്റമാണ് ഫിറ്റ് ഇന്ത്യ ക്യാമ്പയിൻ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു ശാരീരിക ക്ഷമത ജീവിത മന്ത്രമാ ക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു പത്തുവർഷം മുമ്പുവരെ ഓരോരുത്തരും എട്ടോ പത്തോ കിലോ മീറ്റർ വരെ നടക്കുകയോ സൈക്കിൾ ഓടിക്കുകയോ മറ്റു കായി കാധാനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്തിരുന്നു

രാഷ്ട്രപതിഭവനിൽ വൈകിട്ട് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ദേശീയ കായിക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വിത രണം ചെയ്യും ദ പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വീടുകൾ ഉൾപ്പെടെ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിൽ പുതിയ സാങ്കേതിക രീതി അവ ലംബിക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രാ യപ്പെട്ടു നിലവിലെ നിർമ്മാണ രീതി മാറ്റി പ്രീ ഫാബ്രിക്കേറ്റഡ് നിർമ്മാണ രീതി ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി സഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ലൈഫ് മിഷനിൽ നിർമിക്കുന്ന ഭവന സമുച്ചയങ്ങളുടെ കാര്യത്തിൽ പുതിയ രീതി സ്ഥീകരിക്കുന്ന കാര്യം പരിഗണിക്കും ഈ രീതി സ്വീകരിക്കാൻ മലയാളിയുടെ മനോഭാ വവും മാറണമെന്ന് പിണറായി പറഞ്ഞു

പ്രകൃതി ദുരന്തങ്ങൾ അതിജീവിക്കാൻ കഴി യുന്ന കെട്ടിടങ്ങൾ വേണം നിർമിക്കാൻ ഇതിന് വ്യാപക പ്രചാ രണം നൽകാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

സുപ്രീംകോടതി വിധി നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു വിധി മറിച്ചായാൽ അതും നടപ്പാ ക്കും വിശ്വാസികൾക്കെതിരാണെന്ന തെർഞ്ഞെടുപ്പ് കാലത്തെ എതിരാളികളുടെ പ്രചാരണത്തെ നേരിടുന്നതിൽ വേണ്ടത്ര ജാഗ്രത ഉണ്ടായില്ലായെന്ന സ്വയം വിമർശനമാണ് പാർട്ടി നടത്തിയതെന്നും അത് നിലപാട് മാറ്റമല്ലെന്നും പിണറായി വ്യക്തമാക്കി

ജെ പി വിശ്വാസികളെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും മുഖ്യ മന്ത്രി കുറ്റപ്പെടുത്തി പാലാ ഉപതെരഞ്ഞെടുപ്പ് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുടെ വില യിരുത്തലാവുമെന്നും എൽ

എഫിന് ആത്മവിശ്വാസമുണ്ടെന്നും പിണറായി പറഞ്ഞു തുഷാർ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ വ്യക്തിബന്ധത്തിന്റെ പേരിലല്ല ഇടപ്പെട്ടതെന്നും മുഖ്യമന്ത്രി അറി യിച്ചു തിരുവനന്തപുരം വി

ടി ഹാളിന് അയ്യങ്കാളി ഹാളെന്ന് പുനർനാമ കരണം ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറി യിച്ചു കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റത്തിന് വലിയ പങ്കുവ ഹിച്ച അയ്യങ്കാളിയോട് ആദര സൂചകമായാണ് പേരുമാറ്റം

ഈ സഭയിൽ അയ്യങ്കാളി അംഗമായിരുന്നുവെന്നത് കൊണ്ടാണ്

തിരുവനന്തപുരം ശംഖുമുഖത്ത് കടലിൽ ചാടിയ പെൺകുട്ടിയെ രക്ഷിക്കുന്നതിനിടെ മരിച്ച ലൈഫ് ഗാർഡ് ജോൺസൺ ഗബ്രി യേലിന്റെ കുടുംബത്തിന് പത്തു ലക്ഷം നൽകാനും മന്ത്രിസഭ തീരു മാനിച്ചു ജോൺസന്റെ ഭാര്യക്ക് ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിൽ ജോലി നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കശ്മീർ എന്നും ഇന്ത്യയുടെ ഭാഗമായിരുന്നുവെന്നും ഇനിയും അങ്ങനെയായിരിക്കു മെന്നും അദ്ദേഹം പറഞ്ഞു പാക്ക് അധീന കശ്മീരിലെ മനുഷ്യാ വകാശ ധംസനങ്ങൾക്ക് പരിഹാരം കാണാനാണ് അവർ ആദ്യം ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഭീകര പ്രവർത്തന ത്തിലൂടെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ പാക്കി സ്ഥാനുമായി എങ്ങനെ ചർച്ച നടത്താനാകുമെന്ന് അദ്ദേഹം ലേയിൽ ചോദിച്ചു അയൽരാജ്യവുമായി മികച്ച ബന്ധങ്ങളാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്ന ത് എന്നാൽ ആദ്യം ഭീകര പ്രവർത്തനങ്ങൾ അവർ അവസാനിപ്പി ച്ചാലേ സാഹചര്യങ്ങൾ മെച്ചപ്പെടൂ

ജമ്മു കശ്മീർ വിഷ യത്തിൽ ഒരു രാജ്യവും പാക്കിസ്ഥാനോടൊപ്പമില്ലെന്നും രാജ്യരക്ഷാ മന്ത്രി പറഞ്ഞു മേഖലയിലെ സുരക്ഷ സൈനിക ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം വില യിരുത്തും

ജമ്മു കശ്മീരിനെ രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളാക്കിയ ശേഷം ആദ്യമായാണ് രാജ്യരക്ഷാ മന്ത്രി ലഡാക്ക് സന്ദർശിക്കുന്നത്

ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കാശ്മീരി ലേക്ക് യാത്രതിരിച്ചു കരുതൽ തടങ്കലിൽ കഴിയുന്ന സി

എം കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തരിഗാമിയെ കാണാനാണ് യാത്ര സുപ്രീം കോടതി ഇന്നലെ തരിഗാമിയെ സന്ദർശിക്കാൻ യെച്ചൂരിക്ക് ഉപാധികളോടെ അനുമതി നൽകിയിരുന്നു തരിഗാമിയെ കണ്ട ശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യ സ്ഥിതി സംബന്ധിച്ച് സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കു മെന്ന് യെച്ചൂരി ന്യൂഡൽഹിയിൽ പറഞ്ഞു ജനാധിപത്യത്തിൽ എല്ലാവരുടെയും അവകാശങ്ങൾ മാനിക്കണമെന്നും അദ്ദേഹം അഭി പ്രായപ്പെട്ടു കശുവണ്ടി വൃവസായ മേഖലയിലെ പൊതുമേഖലാ സ്ഥാപന ങ്ങളായ കാപ്പെക്സും കശുവണ്ടി വികസന കോർപ്പറേഷനും ആ ഭൃന്തരവിപണിയിൽ സജീവമാകുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയ മ്മ കൊല്ലത്ത് പറഞ്ഞു

മോദി അനു കൂല പ്രസ്താവനയിൽ ഡോ ശശിതരൂർ എം പിക്കെതിരെ നടപടിയില്ലെന്ന് കെ

ഇക്കാര്യത്തിൽ തരൂരിന്റെ വിശദീകരണം തൃപ്തികരമാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു വിവാദം അവസാനിച്ചെന്നും ആരും പരസ്യ പ്രതിക രണം നടത്തരുതെന്നും മുല്ലപ്പള്ളി പറഞ്ഞു കോയമ്പത്തൂരിൽ അഞ്ച് ഇടങ്ങളിൽ എൻ ഐ

എസ് ബന്ധം സംശയിക്കുന്നവരുടെ വീടുകളും ഫ്ളാറ്റുകളും കേന്ദ്രീകരിച്ചായിരുന്നു റെയ്ഡ് ഐ എസ് ഘടകം സ്ഥാപിച്ചതു മായി ബന്ധപ്പെട്ട കേസിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത് റെയ്ഡിൽ കുറ്റവാളികളുടേതെന്ന് സംശ യിക്കുന്ന മൊബൈൽ ഫോൺ ലാപ്ടോപ് സിംകാർഡ് എന്നിവ കണ്ടെടുത്തു

തിരു വനന്തപു രത്ത് കാര്യ വട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം ടോസ് നേടിയ ദക്ഷി ണാഫ്രിക്ക ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു സംസ്ഥാനത്തെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസുകളിൽ മുറികൾ ബുക്ക് ചെയ്യാൻ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ജി സുധാകരൻ അറിയിച്ചു ചെങ്ങന്നൂരിലെ റെസ്റ്റ് ഹൌസ് നിർമാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഡബ്ല്യു ഡി മുൻ സെക്ര ട്ടറി ടി

സൂരജ് സെക്രട്ടറിയായിരിക്കുമ്പോഴാണ് പാലത്തിന് കരാർ നൽകിയത് ടെൻഡർ നടപടി ക്രമങ്ങളിൽ പ്രാഥമിക അന്വേഷണത്തിൽ ക്രമ ക്കേട് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ചോദ്യം ചെയ്യൽ സർഫാസിനിയമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ സിറ്റി ങ്ങ് കണ്ണൂരിൽ തുടങ്ങി എസ് ശർമ എം ഉമർ ജയിംസ് മാത്യു എ ന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ കണ്ണൂർ ഡി സി

കോൺ ഗ്രസ് നേതാവും തളിപറമ്പ് കൂവേരി സർവ്വീസ് സഹകരണ ബാ ങ്ക് പ്രസിഡന്റുമായ കെ എംപ്രകാശന്റെ മരണത്തിന് കാരണം പരി യാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മതിയാ യ ചികിത്സ ലഭിക്കാത്തതിനാലാണെന്ന് ആരോപിച്ചാണ് ഉപവാസം മലമ്പുഴ ഡാമിൽ നിന്നും വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ തെളിമ വീണ്ടെടുക്കാൻ ട്രീറ്റ്മെന്റ് പ്ലാന്റുകളും ടാങ്കുകളും ശുചീ കരിച്ചു തുടങ്ങി ശുചീകരണ പ്രവർത്തിയുടെ ഭാഗമായി ശനിയാഴ്ച വരെ പാലക്കാട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും കൂടിവെള്ള വിതരണം തടസ്സപ്പെടും

ഇതുമൂലം ഫിൽറ്റർ ബഡ്ഡുകളിൽ ചെളി അടിഞ്ഞുകൂടി ജലശുദ്ധീ കരണത്തെ ബാധിച്ചതിനെ തുടർന്നാണ് നടപടി മഴക്കെടുതിയിൽ നഷ്ടം നേരിട്ട ക്ഷീര കർഷകർക്ക് മലബാർ മേ ഖല ക്ഷീരോത്പാദക യൂണിയൻ പാലിന് അധിക വില നൽകും ജൂലായ് മാസം പാൽ അളന്ന കർഷകർക്കാണ് ചാർട്ട് വിലയേക്കാൾ ഒന്നര രൂപ അധികം നൽകുക

ഫിറ്റ് ഇന്ത്യ മുവ്മെന്റിന്റെ ഭാഗമായി ലക്ഷദ്വീപിലും പരിപാടി കൾ സംഘടിപ്പിച്ചു കവരത്തിയിൽ നടന്ന പരിപാടിയിൽ അഡ്മി നിസ്ട്രേറ്റർ മിഹിർ വർദ്ധൻ സേനാ ്രമേധാവികൾ പഞ്ചായത്ത് അംഗങ്ങൾ വിദ്യാത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു മറ്റു ദ്വീപു കളിൽ സ്കുളുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിപാടി ചർച്ച് ആക്ട് ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടില്ലെന്ന് നിയമ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റീസ് കെ

തോമസ് പറഞ്ഞു കേരള ക്രൈസ്തവസഭ സ്ഥത്തുക്കളും സ്ഥാപനങ്ങളും എന്ന ബില്ലിന്റുകരട് മാത്രമാണ് പ്രസിദ്ധീകരിച്ചത് ക്രൈസ്തവ സഭകളുടെ സ്വത്തും സ്ഥാപനങ്ങളും കൈകാര്യം ചെയ്യാൻ നിയമം ഉണ്ടാകണമെന്നും ജസ്റ്റിസ് കെ

തോമസ് കോട്ടയത്ത് ആവശ്യ പ്പെട്ടു കോഴിക്കോട് പുതിയ ബസ് സ്റ്റാന്റിന് സമീപം സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരി മരിച്ചു കോഴിക്കോ ട് കരുവശ്ശേരി സ്വദേശി ജയശ്രീ ആണ് മരിച്ചത് രാവിലെയുണ്ടായ അപകടത്തിൽ ബൈക്ക് ഓടിച്ച ഭർത്താവിന് പരിക്കേറ്റു

പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫ മാ ധവ് ഗാഡ്ഗിൽ ഉദ്ഘാടനം ചെയ്യും കാസർകോട് കോടതി പരിസരത്തുനിന്ന് കഞ്ചാവുമായി യുവാ വിനെ പോലീസ് അറസ്റ്റ് ചെയ്തു

നഗ റിലെ മൊയ്തീനെയാണ് വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്